സാധൃത പരിശോധിക്കുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

കാരൃക്ഷമമായി ഇടപ്പെട്ടെന്ന് ്റവ്ന്യൂ മന്ത്രി പുനർനിർമ്മാണ പ്രവർത്തനത്തിലെ വീഴ്ച ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷ്യേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങി പോയി പ്ര സംസ്ഥാന ബജ്റ്റ് നാ്ളെ സാമ്പത്തിക അവലോകന ന് റിപ്പോർട്ട് ധനമന്ത്രീ ഇന്ന് നിയമസഭയിൽ വയ്ക്കും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം

നിന്നും കേരളം പുറത്തായി നിയമസഭ പിണറായി അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസുമായി ബന്ധപ്പെട്ട് കേരള എല്ലാ സ്ട്രീമുകളിലും സംവരണം നടപ്പിലാക്കണമെന്ന ആവശ്യം ഗവൺമെന്റ് പരിശോധിച്ചുവരികയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീ ഷൻ എന്നിവയുടെ ഉത്തരവുകൾ കൂടി കണക്കിലെടുത്താണ് നടപടി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജീവനക്കാരിൽ നിന്നുള്ള തസ്തിക മാറ്റ നിയമനങ്ങൾക്ക് നിലവിൽ സംവരണ തത്വം ബാധകമാക്കാറില്ല ഇക്കാര്യ ത്തിൽ ഗവൺമെന്റ് നിയമോപദേശം തേടിയിരുന്നതായും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു

രാജേഷിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയാ യാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് അസംബ്നി ഗവൺമെന്റിന്റെ പ്രളയ പുനർനിർമ്മാണ് പ്രവർത്തനം നഷ്ടപരിഹാര വിതരണം എന്നിവയിലെ വീഴ്ചകൾ സഭ നിർത്തി വച്ച് ചർച്ച ചെയ്യാത്ത തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ്ടം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രളയ ദൂരിതാശ്വാസ പ്രവർത്ത്നങ്ങൾ നടത്തുന്നതിൽ ഗവൺമെന്റ് കാര്യ ക്ഷമമായി പ്രവർത്തിച്ചതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയിൽ പറഞ്ഞു പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഗൌരവ മായി പരിശോധിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭിക്കാത്തവർക്ക് കൂടി നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും റവന്യൂമന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ നടപടികൾ മാതൃകാപരമാ ണെന്നും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു

എഫിലെ വി

സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഗവൺമെന്റിന്റെ പല പദ്ധതികളും ചുവപ്പ്നാടയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് വി

നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഗവൺമെന്റിന് ഗുരുത രമായ പാളിച്ചകൾ ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു പ്രളയബാധിത പ്രദേശങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു അതിനാൽ ഈ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണ മെന്ന് വി

സതീശൻ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ജനങ്ങളുടെ കണ്ണുനീർ കാണാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

അർഹരായ പലർക്കും ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇപ്പോഴും പല കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നതെന്നും ശ്രീ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി

രാജു വനം കയ്യേറ്റം തടയൂന്നതിനായി സമഗ്രമായ നടപടികൾ സ്വീകരിച്ചുവരുന്നതായി മ്ന്ത്രി കെ രാജു നിയമസഭയിൽ പറഞ്ഞു ഇതിന്റെ ഭാഗമായി വനാതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കും വനാതിർത്തി നിർണ്ണയിച്ച് ജൻഡകൾ സ്ഥാപിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു ജില്ലകളിൽ സംയുക്ത പരിശോധന സർവ്വേ പൂർത്തിയാക്കിയിട്ടുണ്ട്

ദീർഘകാലമായി നികുതി അടയ്ക്കുന്നവരെ വനഭൂമിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കി ല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കൃഷ്ണൻ കുട്ടി സംസ്ഥാനത്ത് കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിന് സമഗ്രമായ കുടിവെള്ള നയം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുമെന്ന് മന്ത്രി കെ

മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഭാഗ മായി അടുത്ത മാസം ആറിന് എം

എ മാരുടെ യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഷോളയാറിലേക്ക് കൂടുതൽ ജലം വിട്ടുതരാമെന്ന് ത്മിഴ്നാട് സമ്മതിച്ചിട്ടുള്ളതായി മന്ത്രി നിയമസഭയെ അറിയിച്ചു വരൾച്ച്യെ നേരിടുന്നതിന് ബന്ധപ്പെട്ടവരുമായി ചേർന്ന് അവലോകനനയും നട്ടത്തുമെന്നും മന്ത്രി അറിയിച്ചു ബജറ്റ് കേരള ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തികനിലയും കൃഷി അടിസ്ഥാന സൌകര്യവികസനം ആരോഗൃം തുടങ്ങിയ മേഖലകൾ തിരിച്ചുളള അവലോകനവും റിപ്പോർട്ടിലുണ്ടാകും വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ സഹായത്തോടെ സംസ്ഥാന ആസൂത്രണ ബോർഡാണ് ഇത് തയാറാക്കിയത്

ചരക്കു സേവന നികുതി പ്രാബലൃത്തിൽ വന്ന ശേഷമുളള രണ്ടാമത്തെ ബജറ്റാണ് ഇത്

വെള്ളിയാഴ്ചയാണ് ഇടക്കാല ബജറ്റ് അവതരണം കേന്ദ്ര ധനമന്ത്രിയുടെ ചുമതലയുള്ള പിയൂഷ് ഗോയലാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുക

ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോകസഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗം ഇന്ന് ലോകസഭ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് ചേരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സ്പീക്കർ സർവ്വകക്ഷിയോഗം വിളിച്ചത്

സ്പർശ് ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് രണ്ടാഴ്ച കുഷ്ഠരോഗ നിവാരണ പക്ഷാചരണം ആചരിക്കുമെന്ന് ആരോഗ്യ മന്ത്രി കെ

പോക്സോ കേസ് പട്ടിക വർഗ വിഭാഗക്കാരിയായ പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്തെന്ന് പരാതിയിൽ വയനാട് ഡിസിസി അംഗം ഒ

ജോർജിന് എതിരെ പോക്സോ നിയമപ്രകാരം പൊലീസ് കേസെടുത്തു ഇയാളെ കോൺഗ്രസ് പാർട്ടയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി കെ

സി

പീഡനത്തെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ജീവനൊടുക്കാൻ ശ്രമിച്ച പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ബത്തേരി പോലീസിനെ വിവരം അറിയിച്ചത്

ക്ഷേത്രം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരേ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പ്രതിനിധികൾ നൽകിയ ഹർജികളാണ് സുപ്രീംകോടതി പരിഗ്രണിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളതിനാൽ ക്ഷി നിലവറ തുറക്കാനാവില്ലെന്ന് രാജകുടുംബം അറിയിച്ചു

തെരഞ്ഞെടുപ്പ് കമ്മിഷന്റെയും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ തങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടൊയെന്ന് വോട്ടർമാർക്ക് പരിശോധിക്കാം

ഒരു ലക്ഷം പേരെയാണ് ബോർഡ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് ലക്ഷം കവിയാനാണ് സാധ്യത

അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയതോടെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ദൃശ്യമാവുകയായിരുന്നു

ഇതോടെ കേരളം ചാമ്പ്യൻഷിപ്പിൽ നിന്നും പുറത്തായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

വനാവകാശ രേഖ വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് അവകാശ രേഖ വിതരണം ചെയ്യാനുള്ള നടപടികൾ ഫെബ്രുവരിയിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്